സ്പെഷ്യൽ തപാൽ വോട്ട് അനുദവിക്കുന്നതിന് നാളെ മുതൽ പട്ടിക തയാറാക്കി തുടങ്ങും

ത ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ മോഹൻബഗാന് വിജയം

വാർത്തകൾ വിശദമായി രാജ്യത്തെ കോവിഡ് വാക്സിൻ വികസനവും ഉൽപ്പാദനവും നേരിട്ട് വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൂന്ന് നഗരങ്ങളിലെ വാക്സിൻ ഗവേഷണ കേന്ദ്രങ്ങൾ സന്ദർശിക്കും രാവിലെ അഹമ്മദാബാദിലെ സൈഡസ് ബയോടെക് പാർക്കും തുടർന്ന് പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ഉച്ചക്ക് ശേഷം ഹൈദരാബാദിലെ ഭാരത് ബയോടെക്കും അദ്ദേഹം സന്ദർശിക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ലാബുകൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ശാസ്ത്രജ്ഞരുമായി ചർച്ചയും നടത്തും വാക്സിൻ വികസനത്തിൽ നേരിടുന്ന വെല്ലുവിളികളും എല്ലാ പൌരൻമാർക്കും വാക്സിൻ എത്തിക്കുന്നതിനാവശ്യമായ നടപടികളും നരേന്ദ്രമോദി വിലയിരുത്തും

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ ഡിസംബർ എട്ടിന് വോട്ടെടുപ്പ് അഴിമതി ആരോപണങ്ങളും വികസന പദ്ധതി വിവാദങ്ങളും നിറഞ്ഞ പ്രസ്താവനകളിൽ ഊന്നിയാണ് മൂന്ന് മുന്നണികളുടേയും പ്രചാരണ പ്രവർത്തനങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം കാര്യമായ ആൾക്കൂട്ടമോ കവല യോഗങ്ങളോ ഇല്ലാതെയാണ് എൽഡിഎഫും യുഡിഎഫും എൻഡിഎ യും മുന്നോട്ട് നീങ്ങുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയതിനാൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ചോദിക്കുന്ന സ്ക്വാഡ് പ്രവർത്തനത്തിനാണ് ഇത്തവണ രാഷ്ട്രീയ പാർട്ടികൾ പ്രാമുഖ്യം നൽകുന്നത്

ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ഒരാളും മത്സരിക്കുന്നുണ്ട്

ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി കണ്ണൂർ കോർപ്പറേഷനിലാണ് മത്സരിക്കുന്നത് രും ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കുന്നതിന് നാളെ മുതൽ പട്ടിക തയാറാക്കൽ ജോലി ആരംഭിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്ക്കരൻ അറിയിച്ചു മറ്റ് ജില്ലകളിൽ ചികിത്സയിലും ക്വാറന്റൈനിലും കഴിയുന്നവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കും കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും നൽകുന്ന പ്രത്യേക ബാലറ്റ് പേപ്പറുടെ എണ്ണം ബന്ധപ്പെട്ട വരണാധികാരികൾ നിർണയിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു രുമ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോവിഡ് മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തരുതെന്ന് മന്ത്രി എ

തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ചേർന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം

രംഭ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ സ്ഥാനാർത്ഥികളുടെ കണക്ക് പരിശോധന തിങ്കളാഴ്ച്ച ആരംഭിക്കും പൊതു തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ രാജേഷ് രവീന്ദ്രൻ തിരഞ്ഞെടുപ്പിന്റെ പൊതു പ്രവർത്തനങ്ങൾ വിലയിരുത്തും

ആകാശവാണി ന്യൂസ് വെബ് സൈറ്റിലും മൊബൈൽ ആപ്സിക്കേഷനിലും ആകാശവാണിയുടേയും ദൂരദർശന്റേയും യൂട്യൂബ് ചാനലുകളിലും പരിപാടി ലഭ്യമാണ്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 രാത്രി എട്ടിന് ഇതിന്റെ പുനപ്രക്ഷേപണവും ഉണ്ടായിരിക്കും രംഭ പനാജിയിൽ ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ എടികെ മോഹൻബഗാൻ ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചു വൈകീട്ട് ഏഴരക്ക് ബെങ്കളൂരു എഫ്സി ഹൈദരാബാദിനെ നേരിടും രും സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷണം അദ്ദേഹത്തിലേക്കെത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി വി

സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും സംശയത്തിന്റെ മുന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വഴി മുഖ്യമന്ത്രിയിലേക്കാണ് നീളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ആശുപത്രി വാസം സംശയാസ്പദമാണെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു

റിസർവ്ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനത്തിലാണ് ലേലം രംഭ ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ മിഡ്ഷിപ്പ്മെൻമാരുടെയും കേഡറ്റുകളുടെയും പാസിങ്ങ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമിയിൽ നടക്കും കരസേന മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ പരേഡിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതിനാൽ ഇത്തവണ കേഡറ്റുകളുടെ രക്ഷിതാക്കളുടെ അഭാവത്തിലാണ് പരേഡ് രും കെഎസ്എഫ്ഇ യുടെ മലപ്പുറം ഇൌവനിങ്ങ് ബ്രാഞ്ചിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി

സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കെഎസ്എഫ്ഇ ബ്രാഞ്ചുകളിൽ ഒരേസമയത്തായിരുന്നു റെയ്ഡ് രും കോഴിക്കോട് ജില്ലയുടെ നെല്ലറയായ ആവളപ്പാണ്ടിയിലെ കുറ്റിയോട്ട് നടയിൽ ജലാശയത്തിൽ വ്യാപിച്ച പായൽ നീക്കം ചെയ്യണമെന്ന് കാർഷിക സർവകലാശാലയിലെ വിദഗ്ധർ നിർദേശം നൽകി ഇതിനായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനവും പ്രയോജനപ്പെടുത്താം പായലിന്റെ വിശദ പരിശോധനക്കായി സംഘം സാമ്പിളുകൾ ശേഖരിച്ചു

പിണറായിയിലെ റഫിനീദ് അഞ്ചരക്കണ്ടിയിലെ റാഷിദ് എന്നിവരാണ് മരിച്ചത് രുമ തൃശൂർ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയും അരനൂറ്റാണ്ടിലേറെ തൃശൂർ പൂരത്തിന്റെ സംഘാടകരിൽ പ്രമുഖനുമായിരുന്ന പ്രൊഫ

മാധവൻകുട്ടി നിര്യാതനായി

സംസ്കാരം വൈകീട്ട് പുഴയ്ക്കൽ ശ്മശാനത്തിൽ നടത്തും രുമ നിവാർ ചുഴലിക്കാറ്റിൽ മരിച്ച നാലുപേരുടെ ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപ വീതം തമിഴ്നാട് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു നാശനഷ്ടം നേരിട്ടവർക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ സഹായധനവും നൽകുമെന്ന് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി അറിയിച്ചു രംഭ ഹിമാചൽ പ്രദേശിലെ മെഡിക്കൽ കോളജുകൾ ഡിസംബർ ഒന്നിന് തുറക്കും വിദ്യാർത്ഥികൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും രക്ഷിതാക്കളുടെ സമ്മതപത്രവും ഹാജരാക്കണമെന്ന് ആരോഗ്യ സെക്രട്ടറി നിർദേശിച്ചു രും ലോക എയ്ഡ്സ് ദിനാചരണം ജില്ലയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താൻ കോഴിക്കോട് ജില്ലാതല സംഘാടക സമിതിയോഗം തീരുമാനിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി ആഗോള ഐക്യദാർഢ്യം പങ്കാളിത്ത ഉത്തരവാദിത്വം എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം രംഭ കണ്ണൂർ ജില്ലയിൽ വ്യാജമദ്യ മയക്കുമരുന്ന് കടത്തും സംഭരണവും വിതരണവും തടയുന്നതിന് എക്സൈസ് വകുപ്പ് പരിശോധന കർശനമാക്കി ലഹരിക്കടത്ത് സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ കൈമാറുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു